കേരളത്തിൽ കള്ളവോട്ട് നടന്നതാറിയി സ്ഥിരീകരിച്ച ഏഴ് ബൂത്തുകളിൽ നാളെ റീ പ്പോളിംഗ്

വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെണ്ണ്ലിനുള്ള ഒരുക്കങ്ങളെല്ലാം സംസ്ഥാനത്ത് പൂർത്തിയായി

വി പാറ്റ് രസീതുകൾ എണ്ണുന്നതിനാൽ ഔദ്യോഗികഫലിഷ്ഖ്യാപനത്തിന് പത്തുമണിക്കൂർ വരെ വൈകുമെന്ന് മുഖ്യ് തിരഞ്ഞെടുപ്പ് ഓഫീസർ

എസ്

ഇ പ്രവാസി ചിട്ടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇംഗ്ലണ്ടിൽ നിർവഹിച്ചു

ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി അടയ്ക്കും

പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു

റീ പോളിംഗ് കേരളത്തിൽ കള്ളവോട്ട് നടന്നതായി സ്ഥിരീകരിച്ച ഏഴ് ബൂത്തുക ളിൽ നാളെ റീ പോളിംഗ് നടക്കും

വോട്ടർ പട്ടികയിലുള്ള പേരും തിരിച്ചറിയൽ രേഖയിലെ പേരും വൃത്യസ്തമാണെങ്കിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും കളക്ടർ വ്യക്തമാക്കി പോളിങ് സ്റ്റേഷന് വെളിയിൽ നിൽക്കുന്ന ബിഎൽഒ യിൽ നിന്ന് വോട്ടർ സ്ലിപ്പ് കൈപ്പറ്റി മാത്രമേ വോട്ടർമാർ പോളിങ് ബൂത്തിലേക്ക് പ്രവേശിക്കാവൂ ഇടതുവശത്തെ നടുവിരലിലാകും മഷി പതിപ്പിക്കുക

റീ പോളിംഗ് കാസർകോട് മണ്ഡലത്തിൽ റീ പ്പോളിഹ്ഗ് നടക്കുന്ന കണ്ണൂരിലെ പിലാത്തറയിൽ മാധ്യമസംഘത്തെ ആക്രമിച്ചവർക്ക് എതിരെ പൊ ലീസ് കേസെടുത്തു

ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോ ഹൻ ഉണ്ണിത്താന്റെ പ്രാിത്ചിയിൽ ഏഴ് ഡിവൈഎഫ്ഐ നേതാക്കൾ ക്കെതിരെയാണ് പരിയാരം പൊലീസ് കേസെടുത്തത്

വോട്ടെണ്ണൽ സംസ്ഥാനത്ത് ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു

ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക

പാറ്റ് രസീ തുകൾ എണ്ണുന്നതിനാൽ ഔദ്യോഗികഫലപ്രഖ്യാപനത്തിന് ചുരുങ്ങിയത് പത്തുമണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം അറിയിച്ചു

എസ് എഫ് ഇ പ്രവാസി ചിട്ടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഇംഗ്ലണ്ടിലെ ഫിൻസ്ബെറി സ്ക്വയറിലെ മോണ്ട് കാം റോയൽ ലണ്ട്ൻ ഹോട്ടലിൽ വച്ചായിരു ന്നു ഉദ്ഘാടനം

ഇ പ്ലിട്ടിയ്ക്ക്ടെ സേവനം പൂർണ്ണമാ യും ഓൺലൈനായിട്ടാണ് നടപ്പാ്ക്കുന്ന്ത്

മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാനത്ത് ദുർമന്ത്രവാദങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾ ക്കുമെതിരെ നിയമനിർമ്മാണം നടത്താനുള്ള സാധ്യത പരിശോധിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു നെയ്യാറ്റിൻകരയിൽ അമ്മയും മകളും ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ദുർമന്ത്രവാദത്തെ തുടർന്നുള്ള പീഡനങ്ങളാണെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ നിർദേശം

ചട്ടലംഘനം അന്തർ സംസ്ഥാന ബസുകളുടെ ചട്ടലംഘനം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ് സിലൂടെ പിഴയായി ഒന്നരക്കോടിയോളം രൂപ ഈടാക്കി

വൻ ഭക്തജന തിരക്കാണ് ഇപ്പോഴും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്

കഴിഞ്ഞ ഈ സീസണിലേക്കാൾ ജലനിരപ്പിൽ കുറവുണ്ടായതായാണ് വൈദ്യുതി ബോർഡിന്റെ വിലയിരുത്തൽ

സ്റ്റു ഡൻറ്സ് പോലീസ് കേഡറ്റ് മേയ് ഫ്ളവേഴ്സ് സമ്മർ ക്യാമ്പിനോട നുബന്ധിച്ച് നടന്ന മാർച്ച് പാസ്റ്റിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാ രിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിലെ അനാരോഗ്യപ്രവണത കൾക്കെതിരായ ശക്തമായ പ്രതിരോധമാണ് സ്റ്റുഡൻറ്സ് പോലീ സ് പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു

നാ്ല് ഡോക്ടർമാർ രണ്ട് ബന്ധുക്കൾ രണ്ട് പൊതു പ്രവർത്തകർ എന്നിവരടങ്ങിയ സംഘമാണ് രൂപീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിത്താശയ ക്കല്ല് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ചേമഞ്ചേരി സ്വദേശി ബൈജു ആണ് മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണ് രോ ഗി മരിച്ചതെന്ന് ആരോപിച്ച് രോഗിയുടെ ബന്ധുക്കൾ ആരോഗ്യവ കുപ്പിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു

മഴക്കാല ശുചീകരണ്ട്എറണാകുളം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ തൊഴിൽ ആരോഗ്യ വകുപ്പുകൾ പരിശോധന നടത്തി നാല് താമസ കേന്ദ്രങ്ങളുടെ ഉടമകൾക്ക് നോട്ടീസ് നൽകി അങ്കമാലി ആലുവ പെരുമ്പാവൂർ കാക്കനാട് കൊച്ചി മേഖലകളിലാണ് പരിശോധന നടത്തിയത്

ജോസ് കെ മാണി കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ കേരള ഉൾപ്പടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാ ണി എം

പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വൃത്യാസമില്ലെ ന്നും സംസ്ഥാന കമ്മിറ്റി ഉടൻ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു

സംഭവുമായി ബന്ധപ്പ്പെട്ട് ദോഹയിൽനിന്ന് എത്തിയ മലപ്പുറം സ്വദേശിയെ കസ്റ്റഡിയിൽ എടുത്തു